മുഖ്യമന്തി ഭരണഘടന വെല്ലുവിളികൾ നേരിടുന്ന ഇക്കാലത്ത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് പോലീസ് സേനയ്ക്ക് നേരിടാനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പരാതികൾക്ക് ഇടനൽകാതെ മാന്യമായ പെരുമാറ്റം കാഴ്ചവയ്ക്കാൻ സേനയിലെ എല്ലാവർക്കും കഴിയണം ഉത്തരവാദിത്വങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതാണ് ജോലിയെന്ന ചുമതലാബോധം എല്ലാ പോലീസുകാർക്കും ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം പേരൂർക്കടയിൽ കെ

പി മൂന്ന് അഞ്ച് ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

സംസ്ഥാനത്ത് നിരോധിക്കപ്പെട്ട കീടനാശിനികളുടെ അവശിഷ്ടവും പൊതുവിപണികളിൽ നിന്ന് ശേഖരിച്ച ചില പച്ചക്കറികളിൽ കണ്ടെത്തി സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും കൃഷി വകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിൽ വിൽക്കുന്ന ഇനങ്ങളും താരതമ്യേന സുരക്ഷിതമാണെന്നാണ് കണ്ടെത്തൽ